ശതമാനത്തിലേക്ക്

അനുമതി നിഷേധിച്ചുതിനെ തുടർന്ന് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്

എൽ

ജംഷഡ്പൂരിനെ നേരിടും

ശനിയാഴ്ച ആരംഭിക്കുന്ന കുത്തിവയ്പിനായി രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വാക്സിൻ വിമാനമാർഗം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്

സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ് ചെയ്തിട്ടുള്ള ആരോഗൃ പ്രവർത്തകരുടെ അനുപാതത്തിന് ൃഷ്ണുസരിച്ചാണ് വാക്സിൻ ലഭ്യമാക്കിയിട്ടുളളത്

തിരുവനന്തപുരത്ത് കോവിഡ് വാക്സിൻ എടുക്കാം സുരക്ഷിതരാകാം എന്ന ശിൽപശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ആദ്യ ഡോസ് എടുത്തു കഴിഞ്ഞാലും സുരക്ഷിതർ ആണെന്ന ധാരണ വേണ്ടെന്നും രണ്ടാമത്തെ ഡോസ് എടുത്ത ശേഷം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞു മാത്രമേ ആന്റിബോഡി രൂപപ്പെടുകയുള്ളൂവെന്നും മന്ത്രി വ്യക്തമാക്കി

രാജ്യത്തെ ആരോഗ്യ അടിസ്ഥാന സൌകര്യ മേഖലയിലെ ശാക്തീകരണ ചികിത്സാ പ്രവർത്തന ചട്ട്ങ്ങൾ നടപ്പാക്കുന്നതിൽ സംസ്ഥാന ഭരണകൂടങ്ങൾ പൂലർത്തിയ ജാഗ്രതയും ആരോഗ്യ പ്രവർത്തകരുടെ നിസ്വാർത്ഥ സേവനവുമ്പ്ണ് രോഗമുക്തരുടെ എണ്ണം വർധിക്കാൻ ഇടയാക്കിയതെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി

ന്യൂസ്ഡെസ്ക് ആകാശവാണി

മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റിലായതും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നതും സഭാ നിർത്തി വച്ച് ചർച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പി

തോമസാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് മുഖ്യമന്ത്രി പ്പു സ്വർണക്കടത്തുകാരെ താലോലിക്കുകയാണെന്ന് ശ്രീ

സ്വർണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ സർക്കാർ ബോധപൂർവ്വം ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു തുടർന്നാണ് പ്രതിപക്ഷം സഭ വിട്ടത്

ഭരണപക്ഷത്തെ എസ് ശർമ അവതരിപ്പിച്ച പ്രമേയത്തിന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഇന്ന് വൈകുന്നേരം മറുപടി പറയും അതേസമയം നിയമസഭാസമ്മേളനം വെട്ടിച്ചുരുക്കിയതിന്റെ ഭാഗമായി മറ്റു ദിവസങ്ങളിലെ നടപടിക്രമങ്ങൾ പുനക്രമീകരിച്ചു

പ്രതിരോധ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ സാശ്രയത്തിനുള്ള പുതിയ ചുവടുവയ്പ്പാണ് ഇതെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ട്ടിററ്റിൽ കുറിച്ചു വരും വർഷങ്ങളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായി തേജസ് മാറുമെന്നും ശ്രീ

ഡിവിഷനുകളിൽ നിർമ്മാണ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നൂതന സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും തദ്ദേശീയമായി രൂപകല്പന ചെയ്യാനും വികസിപ്പിക്കാനും നിർമ്മിക്കാനുമുള്ള ശക്തിയായി ഇന്ത്യ വളരുകയാണെന്നും രാജ്യരക്ഷാ മന്ത്രി കൂട്ടിച്ചേർത്തു

വളരെ വെല്ലു്പിളികൾ നിറഞ്ഞ ഒരു വർഷമാണ് കടന്നു പോയ്ക്ക്രിന്ന് ദിനാചരണ പരിപാടികളിൽ പങ്കെടുത്ത് കരസേന്റ്റ് മ്യേധാവി ജനറൽ എം

കോവിഡിനൊ്പ്പം വടക്കൻ അതിർത്തിയിലും സൈനൃം ധീരമായ ചെറുത്തുനിൽപ്പ് നടത്തിയതായും അദ്ദേഹം പറഞ്ഞു

പ്രകൃതിയുമായി സന്തുലിത ജീവിതം നയിക്കാനും ജീവിതത്തിൽ അനുകമ്പ മനോഭാവം വളർത്താനും ഇത്തരം ഉത്സവങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു

പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള തിരുവാഭരണം വൈകിട്ട് ആറരയോടെ അയ്യപ്പസന്നിധിയിൽ എത്തും തുടർന്ന് തിരുവാഭരണ പേടകം പതിനെട്ടാംപടിക്ക് മുകളിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ബോർഡ് പ്രസിഡന്റ് എൻ വാസു മെമ്പർമാർ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങും ശ്രീകോവിലിലേക്ക് ആനയിക്കുന്ന തിരുപ്പാഭരണ പേടകം തന്ത്രി കണ്ഠരര് രാജീവരും മേൽശാന്തി പ്പി കെ ജയരാജ് പോറ്റിയും ഏറ്റുവാങ്ങി അയ്യപ്പവിഗ്രഹത്തിൽ പ്രാർത്തും

ഒരു റിപ്പോർട്ട്

കോവിഡ് സാഹചര്യത്തിനു യോജിച്ചു തരം നൈപുണ വികസനത്തിനാകും ഈ ഘട്ടത്തിൽ പ്രാധാന്യം നൽകുക

നിലവിലെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതും കോവിഡ് മഹാമാരി പ്രതികൂലമായി ബാധിച്ച രാജ്യത്തെ നൈപുണ്യ സംവിധാനത്തെ ശാക്തീകരിക്കുന്നതും ലക്ഷ്യമിട്ടാണ് പുതിയ ഘട്ടം നടപ്പാക്കുന്നത്

പ്രമേയം ഡെമോക്രാറ്റുകൾക്ക് ഭൂരിപക്ഷമുള്ള സഭയിൽ പത്ത് റിപ്പബ്ലിക്കൻ അംഗങ്ങളും ഇംപീച്ച്മെന്റ് പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു ജനപ്രതിനിധി സഭ പാസാക്കിയ ഇംപ്പിച്ച്മെന്റ് പ്രമേയം ഇനി സെനറ്റിലേക്ക് നീങ്ങും മൂന്നിൽ രണ്ട് ടൂരിപക്ഷം ലഭിച്ചാൽ മാത്രമേ ഡോണൾഡ് ട്രംപിനെതിരെ ക്യൂറ്റും ചുമത്താനാകു

ഇന്നലെ നടന്ന മത്സരത്തിൽ ഒഡിഷയ്ക്കെതിരെ ചെന്നൈയിൻ എഫ്

ഒന്നിനെതിരെ രണ്ടു ഗോളുകൾക്ക് വിജയിച്ചിരുന്നു

ഉച്ചയ്ക്ക് രണ്ടിന് കൊൽക്കത്തയിലാണ് മത്സരം